സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി

രണ്ടിടത്ത് എൽ

അരൂരിൽ ഷാനിമോൾ ഉസ്മാനും എറണാകുളത്ത് ടി ജെ വിനോദും മഞ്ചേശ്വരത്ത് എം

മഹാരാഷ്ട്രയിൽ ബിട്ജെ പി ശിവസേനാ സഖ്യം വീണ്ടും അധികാരത്തിലേയ്ക്ക്

ജെ

ജമ്മുകശ്മീർ ബ്ളോക്ക് ഡെവലപ്പ്മെന്റ് കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായി

ഡി

രണ്ടിടത്ത് എൽ

ഡി എഫ് സ്ഥാനാർത്ഥികളായഷാനിമോൾ ഉസ്മാൻ അരൂരിലും ടി ജെ വിനോദ് എറണാകുളത്തുംഎം

പ്രശാന്ത് വട്ടിയൂർക്കാവിലും കെ

മഞ്ചേശ്വരം ഒഴികെയുള്ളിട്ത്ത് ബി ജെ പി മൂന്നാം സ്ഥാനത്തായി

വോയിസ് ത്രികോണ മത്സരം നടന്ന വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം എൽ

എഫ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു

ഐഎം സ്ഥാനാർഥി വി

പ്രശാന്ത് വിജയിച്ചത്

ഡി എഫിലെ കെ

എഒറ സ്ഥാനാർത്ഥി കെ

അരൂർ മണ്ഡലം യു ഡി എഫിന്റെ ഷാനിമോൾ ഉസ്മാൻ പിടിച്ചെടുത്തു

ഇടതുമുന്നണി സ്ഥാനാർഥി മനു സി

എറണാകുളത്ത് യുഡിഎഫ് സ്ഥാനാർഥി ടി

സി ഖമറുദ്ദീൻ വിജയിച്ചത് ബിജെപിയുടെ രവീശ തന്തി കുണ്ടാർ രണ്ടാം സ്ഥാനത്തുക്കുസിപിഐഎം ന്റെ ശങ്കർ റൈ മൂന്നാം സ്ഥാനത്തുമാണ്

ജനമനസ്സ് ആരുടെയെങ്കിലും കോന്തലയ്ക്കൽ കെട്ടിയിട്ടതല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു അരൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ നേടിയത് ചരിത്ര വിജയമെന്ന് കെ

സി

വട്ടിയൂർക്കാവിലെയും കോന്നിയിലെയും വിജയം ഇടതു ഗവൺമെന്റിന്റെ ജനക്ഷേമപ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എൽ ഡി എഫിന്റെ വിജയത്തിന് മങ്ങലേൽപിച്ച അരൂരിലെ പരാജയത്തിന്റെ വിശദാംശങ്ങൾ പാർട്ടി പ്രത്യേകമായി പരിശോധിക്കുമെന്നും ശ്രീ കോടിയേരി പറഞ്ഞു ഇനി ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിയാതെ ബി ജെ

യു ഡി എഫും എൽ ഡി എഫും നടത്തിയ കുപ്രചരണം തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയായതായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു

ജെ

എന്നാൽ ഹരിയാനയിൽ ഒരു ആഷ്ട്രടീയ പാർട്ടിയ്ക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല കൂടുതൽ വിവരങ്ങളുമായി ഉദ്ദയ്ൻ കിളിയന്നൂർ

ജെ

ഐ

മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് നാഗ്പൂർ സൌത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു എന്നാൽ പ്രമുഖ ബി ജെ

ജെ

കർണാലിൽ നിന്നും ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ വിജയിച്ചു കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി ഭൂവിന്ദർ സിങ് ഹുഡയും ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാലയും തെരഞ്ഞെടുപ്പിൽ വിജയം നേടി ഹരിയാന ധനമന്ത്രിയും ബി ജെ പി നേതാവുമായ ക്യാപ്റ്റൻ അഭിമന്യൂ നർനൌന്ദ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടു

ഹരിയാനയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി യാണെന്നും പാർട്ടി വക്താവ് ജി

അതേസമയം ഹരിയാനയിൽ കോൺഗ്രസിന് ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയുമെന്ന് പാർട്ടി സംസ്ഥാന അദ്ധ്യക്ഷ കുമാരി സെൽജ പ്രത്യാശ പ്രകടിപ്പിച്ചു മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന സഖ്യ ഗവൺമെന്റ് നിലവിൽ വരുമെന്ന് ശിവസേനാ നേതാവ് സഞ്ചയ് റൌട്ട് പറഞ്ഞു

ജെ പി അധികാരത്തിൽ എത്താതിരിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് മഹാരാഷ്ട്ര വക്താവ് സചിൻ സാവന്ത് അഭിപ്രായപ്പെട്ടു

മഹാരാഷ്ട്രയിലെ സത്താറാ ലോക്സഭാ മണ്ഡലത്തിൽ എൻ സി പിയിലെ ശ്രീനിവാസ് പാട്ടീൽ മുന്നിട്ട് നിൽക്കുന്നു ബീഹാറിലെ സമസ്തിപൂർ ലോക്സഭാസീറ്റിൽ എൻ

സിക്കിം നിയമസഭയിലെ മൂന്ന് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ട് സീറ്റുകളിലും സിക്കിം ക്രാന്തികാരി മോർച്ച ഒരു സീറ്റിലും വിജയിച്ചു പുതുച്ചേരിയിലെ ക്വാമ്മ്യാജ് നഗർ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെട്ടുപ്പിൽ കോൺഗ്രസിലെ എ

തെലങ്കാന നിയമസഭയിലെ ഒരു സ്വീറ്റില്ലേയ്ക്ക് നടന്ന മത്സരത്തിൽ ഭരണകക്ഷിയായ ടി

ഉപതെരഞ്ഞെടുപ്പിൽ ഫലം പ്രഖ്യാപിച്ച അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റ് ബി ജെ പിയ്ക്കും ഓരോ സീറ്റുകൾ വീതം അപ്നാദള്ളിനും സമാജ്വാദി പാർട്ടിക്കും ലഭിച്ചു ബീഹാറിൽ അഞ്ച് മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആർ

ഗുജറാത്തിൽ ഫലം പ്രഖ്യാപിച്ച മൂന്ന് അസംബ്ലി സീറ്റുകളിൽ കോൺഗ്രസിന് രണ്ട് സീറ്റും ബി

പഞ്ചാബിലെ നാല് മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് മൂന്ന് ഇടങ്ങളിലും അകാലിദൾ ഒരു സീറ്റിലും വിജയിച്ചു അസമിൽ ഫലം പ്രഖ്യാപിച്ച ഒരു സീറ്റ് ബി

രാജസ്ഥാനിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയും ഓരോ സീറ്റുകളിൽ വിജയിച്ചു ഒഡീഷയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ

നാഷണൽ കോൺഫറൻസ് പി ഡി ട്ടി പ്രീപ്പിൾസ് കോൺഫറൻസ് കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ തെർഞ്ഞെടുപ്പ് ബഹിഷ്ക്കരിച്ചിരുന്നു

എം ഗോൾഡ് ചാനലിലും മറ്റ് ഫ്രീക്വൻസികളിലും പരിപാടി ലഭൃമാകും

ജെ പി പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിലൂടെ ആശയ വിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം

ഒഡീഷയിൽ അടുത്ത രണ്ടുദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാവകുപ്പ് മുന്നറിയിപ്പ് നൽകി ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്കു കാരണം ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം വിശാഖ്പെട്ട്ണം ഗുണ്ടൂർ ജില്ലകളിലും തീരപ്രദേശങ്ങളിൽ പ്രളിയ സമാനമായ സാഹചര്യമാണുള്ളത്